സംസ്ഥാനങ്ങൾക്ക് ആരോഗൃമന്ത്രാലയത്തിന്റെ നിർദ്ദേശം

പ്രചാരണം ഊർജ്ജിതമാ്യി

ഇന്ത്യ ഒമാൻ സൌഹൃദ ഫുട്ബോൾ മത്സരം ഇന്ന് നടക്കും

കോവിഡ് നിയന്ത്രിക്കുന്നതിനായി വൃത്യസ്ത മാർഗ്ഗങ്ങളിലൂടെ സ്വീകരിച്ച മുൻകരുതലുകൾ ഇല്ലാതാക്കാൻ ഈ ഘട്ടത്തിലെ ചെറിയ അശ്രദ്ധ കാരണമാകുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി അർതി അഹുജ കത്തിൽ പറഞ്ഞു

കോവിഡ് കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിൽ മുംബൈയിലും ഹോളി ആഘോഷങ്ങൾ ന്യൂരോധിച്ചിട്ടുണ്ട്

കോവിഡ് ഷാക്സിൻ ഡോസുകൾ തമ്മിലുള്ള പുതുക്കിയ സമയി ഇട്ടവേള കോവിഷീൽഡിന് മാത്രമേ ബാധകമാകൂവെന്നും ക്കോവാക്സിന് ബാധകമല്ലെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അ്ട്രിയിച്ചു ഒരു റിപ്പോർട്ട്

കോവിഡ് കേസുകൾ വർധിക്കുന്നതിൽ മഹാരാഷ്ട്രയും പഞ്ചാബും കടുത്ത ആശങ്കയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു

ആരോഗൃ പരിരക്ഷയ്ക്കായുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിക്കാനും ബില്ലിൽ വ്യവസ്ഥ ഉണ്ട്

ഏഷ്യയിലെ ഏറ്റവും വലിയ തുലിപ് പൂന്തോട്ടമാണിത് വൃത്യസ്ത നിറങ്ങളിൽ ലക്ഷക്കണക്കിന് തുലിപ് പൂക്കളാണ് ദാൽ നദിക്കരയിലെ സബർവൻ കുന്നുകളുടെ താഴ്വരയിൽ വിരിഞ്ഞിട്ടുള്ളത്

യുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ ഭാഗമായി ബി ജെ

ജെ

നേതാവ് സി

ധർമ്മട് ് മണ്ഡലത്തിലെ നാലാം പീടിക മുതൽ ചക്കരക്കല്ല് വരെയാണ്ട് ് റോഡ് ഷോ

സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് വോട്ടെടുപ്പ് ദിവസം ശമ്പളത്തോടു കൂടിയ അവധി ലഭ്യമാക്കാൻ ലേബർ കമ്മീഷണർ നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ വോട്ടർ പട്ടികയിൽ പേരു വന്നിട്ടുള്ളതും എന്നാൽ ജില്ലയ്ക്ക് പുറത്ത് ജോലി ചെയ്യുന്ന ഇതര വിഭാഗം ജീവനക്കാർക്കും കാഷൽ ജീവനക്കാർക്കും വോട്ടെടുപ്പ് ദിവസം വേതനത്തോടു കൂടിയ അവധിയായിരിക്കും

വോട്ടർപട്ടികയിലെ ഇരട്ടിപ്പ് കണ്ടെത്താനുള്ള പരിശോധനയും നടക്കുകയാണ്

സ്ഥാനാർത്ഥി പര്യടനവും ഗൃഹ സന്ദർശനവും കുടുംബയോഗവും കൺവെൻഷനുകളും ഉൾപ്പെടെ സ്ഥാനാർത്ഥികൾ നടത്തുന്നു പ്രമുഖ ദേശീയ നേതാക്കളും കേരളത്തിൽ പ്രചാരണത്തിനായുണ്ട്

ഡി എ യുടെ പ്രചാരണത്തിനായി സംസ്ഥാനത്തെത്തിയ ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷ്ട്രൂ ഇന്നലെ തൃപ്പൂണിത്തുറയിൽ നടന്ന റോഡ് ഷ്യായിൽ പങ്കെടുത്തു കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി കൊല്ലത്ത് പുറ്റിങ്ങൽ പാലക്കാട് കഞ്ചിക്കോട് എന്നിപ്പിടങ്ങളിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പങ്കെടുത്തു കോൺഗ്രസിള്ലൂ മൂതിർന്ന നേതാവും പ്രവർത്തക സമിതി അംഗവുമായ എ

ഡി എഫിന്റെ വിവിധ പ്രചാരണ യോഗങ്ങളിലൂർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പത്തനംതിട്ട ജില്ലയിലും ത്തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായി

എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുണ്ട് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച പരിശോധന ഇന്ന് പൂർത്തിയാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി

ഇവരുടെ പട്ടിക പോളിംഗ് ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ കക്ഷികൾക്കും നൽകും വോട്ട് ചെയ്ത് വിരലിലെ മഷി ഉണങ്ങിക്കഴിഞ്ഞ് മാത്രമേ ബൂത്ത് വിടാൻ അനുവദിക്കാവൂ എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ നിർദ്ദേശം നൽകി

പോസ്റ്റൽ ബാലറ്റിനായി അപേക്ഷിച്ചവരിൽ അർഹരായ സമ്മതിദായകർക്ക് പ്രത്യേക പോളിങ് ടീം ബാലറ്റ് പേപ്പറും അനുബന്ധ രേഖകളും വീടുകളിലെത്തിക്കും പോളിങ് ഉദ്യോഗസ്ഥർ സന്ദർശിക്കുന്ന സമയം എസ് എം

കോവിൻ സിസ്റ്റത്തിൽ രജിസ്ട്രേഷൻ നടത്തണം അതേ ദിവസം തന്നെ വാക്സിനേഷൻ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം രാജ്യത്ത് വാക്സിൻ ദൌർലഭൃമില്ലെന്ന് കേന്ദ്രം അറിയിച്ചു

ശനിയാഴ്ച യു എ

കോവിഡ് വ്യാപനത്തിനുശേഷ്ടം ആദ്യമായാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം രാജ്യാന്തര മൃത്ഥർത്തിനിറങ്ങുന്നത്

കോവിഡ് വ്യാപനം കൂടുതൽിയ്യി റിപ്പോർട്ട് ചെയ്ത ബേതുൽ ചിദ്വാര രത്ലം ഖർഗ്യോൺ ് എന്നിവിടങ്ങളിൽ ഞായറാഴ്ച മുതൽ ലോക്ഡൌൺ പ്രാബലൃത്തിൽ വരുമെന്ന് മധ്യപ്രദേശ് സർക്കാർ അറിയിച്ചു

ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചതും കൂടുതൽ മരണം രേഖപ്പെടുത്തിയതും അമേരിക്കയിലാണ്

വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജോലി സ്ഥലങ്ങൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ച് കോവിഡ് ക്ലസ്റ്ററുകൾ ഏറുകയാണെന്ന് സ്ലാസ്ഥാന സർക്കാർ വ്യക്തമാക്കി